രാജ്യത്ത് യഥാസമയം നടന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ രോഗനിയന്ത്രണത്തെ സഹായിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സി

ആറിന്റെ മൂന്ന് അതിനൂതന കോവിഡ് പരിശോധനാ ലാബുകൾ പ്രധാന മന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു

ഇന്ത്യൻ സേനയ്ക്ക് കരുത്തേകി ഫ്രാൻസിൽ നിന്നും അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നു പോർ വിമാനങ്ങൾ ബുധനാഴ്ച ഇന്ത്യൻ സേനയുടെ ഭാഗമാകും

നോയിഡ മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ലാബുകൾ പ്രവർത്തനമാ രംഭിച്ചത് രാജ്യത്ത് ആരോഗൃമേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട അടി സ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് വീഡിയോ കോൺഫ റൻസിലൂടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു യഥാസമയം തന്നെ രാജ്യത്ത് നടന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മഹാമാരിയെ വലിയ അളവിൽ നിയന്ത്രിക്കാൻ സഹാ യിച്ചു ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡ് മഹാമാരി ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യൂയ്ക്ക് കഴിഞ്ഞുവെന്നും പ്രധാ നമന്ത്രി പറഞ്ഞു

കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്ത്ണ്ടി വരുന്ന സാഹചര്യമാണ് മാതൃകയാവേണ്ടവർ തന്നു രോഗം പരത്തുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും മുഖ്യമ്ത്രി പറഞ്ഞു ഒരു റിപ്പോർട്ട് വോയിസ് കോവിഡ് പ്രതിരോധം ആഴ്ചകളോ മാസങ്ങളോകൊണ്ട് അവസാനിക്കുന്നതല്ലെന്നും അതിനായി ദീർഘകാല പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി കോവിഡ് ആരോഗ്യ പ്രശ്നം മാത്രമല്ല സാമൂഹിക സാമ്പത്തിക പ്രശ്നം കൂടിയാണ് സർക്കാർ ആശുപത്രികളിൽ പൂർണമായും സൌജന്യ ചികിത്സയാണ്

ഇപ്പോൾ പ്രവർത്തിക്കാത്തും ഭാഗികമായി പ്രവർത്തി ക്കുന്നതുമായി ആശുപത്രികൾ ഏറ്റെടുത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമാക്കും ക്സ്റ്ററുകൾ രൂപപ്പെടാൻ സാധൃതയുള്ള മേഖലകളെ കൂടുതൽ പഠനവിധോയമാക്കും

മരിക്കുന്നവരുടെ കോവിഡ് പരിശോധന ഒട്ടും വൈകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും നിരുത്തരവാദ സമീപനത്തിലൂടെ കോവിഡ് വ്യാപനത്തിന് കാരണക്കാർ ആകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദേശസുരക്ഷയും വിവര സ്വകാരൃതയും മുൻ നിർത്തിയാണ് നിരോധനം

ബുധനാഴ്ച ഈ പോർവിമാനങ്ങൾ ഹരിയാനയിലെ അംബാല വ്യോല താവളത്തിലെത്തുന്നതോടെ ഔദ്യോഗികമായി ഇവ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും

തെക്കൻ ഫ്രാൻസിലെ മെറിഗ്നാക് വ്യോമതാവളത്തിൽ നിന്നുമാണ് ഇവ പുറപ്പെട്ടത്

ഇയിലെ ഫ്രഞ്ച് വ്യോമതാവളത്തിൽ ഇറങ്ങും പത്ത് വിമാനങ്ങൾ പൂർത്തിയായെങ്കിലും അഞ്ച് എണ്ണം തുടർ പരിശീലനത്തിനായി ഫ്രാൻസിൽ തന്നെ തുടരുമെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു

കേറ്റർ എയർ ടു എയർ മിൾസ്രെൽ സ്കാൾപ്പ് ക്രൂയിസ് മിസൈൽ എന്നിവയുൾപ്പെടെ വളർ ഫ്ലപ്രദമായ ആയുധങ്ങൾ വഹിക്കാൻ റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിയും

കേന്ദ്രത്തിന്റെയല്ലാത്ത സ്ഥാപനങ്ങളിൽ അഖിലേന്ത്യാ കാട്ടയിൽ ഒബിസി സംവരണം ഏർപ്പെടുത്തുന്നതിന് നിയമപരമോ ഭരണഘടനാപരമോ തടസ്സമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എ പി സാഹിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിരീക്ഷിച്ചു കമ്മറ്റി യുടെ ഭാഗമാകാൻ തമിഴ്നാട് ആരോഗ്യ സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അഖിലേന്ത്യാ കാട്ടയിൽ ഒബിസി സംവരണം നിഷേധിക്കുക യാണെന്ന് കാട്ടി തമിഴ്നാട്ടിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഹർജികൾ നൽകിയിരുന്നു കേന്ദ്രസ്ഥാപനങ്ങളിലെ സംവര ണത്തെ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ എതിർക്കു ന്നില്ലെന്നും ഇതര സ്ഥാപനങ്ങളിൽ എതിർക്കുന്നതിൽ അടിസ്ഥാ നമില്ലെന്നും ഹർജി പരിഗണിച്ചു കോടതി വ്യക്തമാക്കി

രാജസ്ഥാൻ ഹൈക്കോടതി വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതായും മറ്റു വഴിക്ൾ പരിഗണിക്കുന്നതായും സ്പീക്കർക്കുവേണ്ടി ഹാജിരായ് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ജസ്റ്റിസ്സ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിനെ ബോധിപ്പിച്ചു

ഭിന്നശേഷിത്വം മൂലം സാമ്പത്തിക ക്ലേശമനുഭവിക്കുന്ന വനിതകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും താങ്ങാവാൻ വേണ്ടിയാണ് പരിണയം പദ്ധതി സംസ്ഥാനത്ത് ആവിഷ്ക്കരിച്ച് നടപ്പിലാക്കി വരുന്നത്